സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമായിരിക്കാനും ഐ

എസ് പ്രൊബേഷനറി ഓഫീസർമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് കാലത്തെ പോലീസ് ഉദോഗസ്ഥരുടെ പ്രവർത്തനം പ്രശംസനീയമെന്നും പ്രധാനമന്ത്രി

കാണണമെന്ന് വിദേശ്കാര്യമന്ത്രി എസ് ജയശങ്കർ ഏതു പ്രകോപനത്തിനും മറ്റുപടി നല്കാൻ ഇന്ത്യ സജ്ജമെന്ന് സംയുക്തസേനാ ്മ്മേധ്ാവി

അതിജാഗ്രത വേണ്ട സമയമെന്ന് ആരോഗൃമന്ത്രി കെ

ആറ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി

എസ്സ് പ്രൊബേഷനറി ഓഫീസർമാരോട് പ്രധാനമന്ത്രി ന്മർശ്ശേന്ദ്രമോദി ഹൈദരാബാദിലെ സർദാർ വല്ല്ഭാിയി പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിലെ ്ദ്രീക്ഷന്ദ് പരേഡിൽ പങ്കെടുത്ത ഓഫീസർമാരോട് വീഡിയ്ക്കോൺഫറൻസിങ്ങിലൂടെ സംസാരിക്കുകയായിരു്ക്കും ്അദ്ദേഹം

യുവാക്കൾ അവരുടെ ജീവിതത്തിന്റെ ആരംഭകാലത്ത് തന്നെ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത് തടയേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ ഉത്തരവാദിത്തം വനിത ഓഫീസർമാർക്ക് ആയിരിക്കും മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു

ഓഫീസർമാർ തങ്ങളുടെ പിരിമുറുക്കം കുറയ്ക്കുന്നതിന് തങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി സംസാരിക്കുന്നത് ഗുണപ്രദമാകുമെന്നും പ്രധാനമന്ത്രി നിർദേശിച്ചു

എസ് പ്രൊബേഷണറി ഓഫീസർമാരാണ് തങ്ങളുടെ രണ്ടു വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയത് തമിഴ്നാട് കേഡറിൽ നിന്നുള്ള കിരൺ ശ്രുതി പാസിങ് ഔട്ട് പരേഡിന് നേതൃത്വം നൽകി അക്കാദമിയുടെ ചരിത്രത്തിൽ ഇത് നാലാം തവണയാണ് പരേഡിന് ഒരു വനിതാ ഓഫീസർ നേതൃത്വം നൽകുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിലവിലെ സാഹചര്യം കണക്കിള്ളിട്ടുത്ത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ സേന്ദ്വിന്യാസം നാം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേശും മാധ്യമങ്ങളോട് പറഞ്ഞു മേഖലയിലെ അതിർത്തി ്യേസ്റ്റുകൾ ഇന്നലെ സന്ദർശിച്ച സേനാ മേധാവി സൈനിക ഉദ്ദ്യൂഗ്സ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും സേനയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ചൈനയുമായി തുടർച്ചയായ ആശയവിനിമയങ്ങൾ നാം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇരുരാഷ്ട്രങ്ങൾക്കിടയിലെയും എല്ലാത്തരം വൃത്യാസങ്ങളും സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കാനാകുമെന്ന് സേനാമേധാവി പ്രതീക്ഷ പ്രകടിപ്പിച്ചു

അതിനിടെ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണരേഖ മേഖലയിൽ ചൈന നടത്തുന്ന ഏതുതരം പ്രകോപനങ്ങൾക്കും തക്ക മറുപടി നൽകാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് അറിയിച്ചു

എസ് ഇന്ത്യ തന്ത്രപ്രധാന സഹകരണ വേദിയിലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം

ആരോള സുരക്ഷാ ചട്ടക്കൂടിന്റെ വികസനത്തിന് ഇന്ത്യ പ്രതിജ്ഞ്ഞാബ്ദ്ധമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

തീവ്രവാദം മയക്കുമരുന്ന് കടത്ത് അതിർത്തികടന്നുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങി പാരമ്പര്യ പാരമ്പര്യേതര വെല്ലുവിളികളെ നേരിടാൻ സുസ്ഥാപിതമായ നടപടി കൾ ആവശ്യമാണ്

കോവിഡ് പ്രതിസന്ധിയെ നേരിടുന്നതിൽ കൈവരിച്ച നേട്ടങ്ങളെയും കോവിഡ് വാക്സിനായ സ്പൂട്നിക് അഞ്ച് വികസിപ്പിച്ചതിലും റഷ്യൻ ഗവൺമെന്റിനെയും ജനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു

ഈ സാഹചര്യത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചത്

കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് പരിശോധനകൾ നടത്താനുള്ള ശേഷിയിൽ വമ്പിച്ച കുതിച്ചുചാട്ടം കൈവരിക്കാൻ ഇന്ത്യക്കായി

ഇ പരീക്ഷകൾ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി ആറ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയാണ് തള്ളിയത്

സ് ഫോടനത്തിൽ പടക്കശാല പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും തകർന്നു

ഓണക്കാലത്ത് കടകളിലും മറ്റും പതിവിൽ കവിഞ്ഞ തിരക്കുണ്ടായി പലരും കുടുംബത്തിൽ ഒത്തുകൂടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ അടുത്ത രണ്ടാഴ്ചയ്ക്കിടെ രോഗവ്യാപനം കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി പറഞ്ഞു

രോഗവ്യാപന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗ്ഗമിറ്റി കണ്ടെയ്ൻമെന്റ സോണുകളല്ലാത്ത പ്രദേശങ്ങളില്ലൂ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന സമയത്തിന് ഏർ്ക്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും ഒഴിവാക്കി